നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നറിയാം

വോട്ടെണ്ണലിന് കേരളത്തിൽ വിപ്പുലമായ ക്രമീകരണങ്ങൾ

ടി വരുമാനത്തിൽ റെക്കോർഡ് വർദ്ധന

ഇന്ത്യൻ സായുധസേനയുടെ സകല സേവനങ്ങളും ലഭൃമാക്കുമെന്ന് രാജൃരക്ഷാമന്ത്രി രാജ്നാഥ് സിങ്

ചെന്നൈ സൂപ്പർ കിങ്സിനെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തി

പരിശോധനയിലൂടെ കോവിഡ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ സ്ഥാനാർത്ഥിക്കും കൌണ്ടിംഗ് ഏജന്റിനും ഉദ്യോഗസ്ഥർക്കും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമുണ്ടാവുകയുള്ളൂ ഫലപ്രഖ്യാപനത്തിന് ശേഷം വിജയാഹ്ലാദ പ്രകടനത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധനം ഏർപ്പെടുത്തി റിട്ടേണിംഗ് ഓഫീസറിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഓഫ് ഇലക്ഷൻ സ്വീകരിക്കാൻ വിജയിച്ച സ്ഥാനാർത്ഥിക്കോ പ്രതിനിധിക്കോ ഒപ്പം രണ്ടിൽ കൂടുതൽ പേർ പോകരുതെന്നും നിർദ്ദേശമുണ്ട് വോട്ടെണ്ണൽ സംബന്ധിച്ച ക്രമീകരണങ്ങൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്ര വീഡിയോ കോൺഫറൻസിംഗ് വഴി വിലയിരുത്തി

വിപുലമായ ക്രമീകരണങ്ങളാണ് വോട്ടെണ്ണലിനായി ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി സുവർണ

തുടർന്ന് വോട്ടിങ് യന്ത്രങ്ങൾ വോട്ടെണ്ണലിനായി യഥാസ്ഥാനത്ത് മാറ്റും

ക്കോവിഡ് വ്യാപനം മുൻനിർത്തിയാണ് നടപടി വോട്ടെണ്ണൽ ക്ന്ദ്രങ്ങളും പാർട്ടി ഓഫീസുകളും ഉൾപ്പെടെ എല്ലായിടത്തും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണം പ്രോട്ടോകോൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ജില്ലാ കളക്ടർമാർക്കും ജില്ലാ പോലീസ് മേധാവികൾക്കും കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്

ഈ കപ്പലുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ക്രയോജനിക് വെസ്സലുകളും അനുബന്ധ മെഡിക്കൽ ഉപകരണങ്ങളും ഇന്തൃയിലെത്തിക്കും

കുട്ടികളുടെ ക്ഷേമവും സുരക്ഷയും നിരന്തരം നിരീക്ഷിക്കാൻ ശിശുക്ഷേമ സമിതികളെ പ്രാപ്തരാക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു

സി

ഡി

ഓക്സിജൻ സിലിണ്ടറുകൾ രാജ്യത്ത് വിവിധയിടങ്ങളിൽ എത്തിക്കുന്നതിൽ സൈന്യം നൽകുന്ന സേവനത്തെ രാജ്യരക്ഷാമന്ത്രി അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജനങ്ങൾ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം

ജില്ലകളിൽ പ്രവർത്തിക്കുന്ന വനിതാ പോലീസ് സ്റ്റേഷനുകൾ വനിതാ സെൽ എന്നിവിടങ്ങളിലുളളവരുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക

ചില ലാബുകൾ ടെസ്റ്റ് നടത്താൻ വിമുഖത കാണിക്കുന്നത് ശ്രദ്ധയിൽപെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ചർച്ച ചെയ്യാകുന്നതാണ്

ടി

ആർ ടെസ്റ്റ് ചെയ്യില്ല എന്ന നിലപാട് ഒരു കാരണവശാലും എടുക്കാൻ പാടില്ലെന്ന് മുഖൃമന്ത്രി പറഞ്ഞു

രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും പഞ്ചാബ് കിംഗ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും

മലയാള മനോരമ മുഖ്യ പത്രാധിപരായിരുന്ന കെ സി മാമ്മൻ മാപ്പിളയുടെ പൌത്രനും കെ

മലയാള മനോരമ ആഴ്ചപ്പതിപ്പിന്റെ ചീഫ് എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്ക്കാരം പിന്നീട്